രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു

നാളെ മുതലാണ് സൂക്ഷ്മപരിശോധന ഈ മാസം എട്ടാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം

കേരളത്തിനു പുറമെ ഗുജറാത്ത് ഗോവ ദാദ്രാനഗർ ഹവേലി ദാമൻ ദിയു പുതുച്ചേരി എന്നിവിടങ്ങളിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കും

ബാലഗോപാൽ തുഷാർ വെള്ളാപ്പള്ളി കെ

ജെ

യുടെ നിർണായകസീറ്റായ അഹമ്മദാബാദ് ഈസ്റ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ മാറ്റി നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന സ്ഥാനാർത്ഥി ബോളിവുഡ് നടൻ പരേഷ് റാവലിന് പകരം ഹസ്മുഖ് പി പട്ടേലിനെയാണ് രംഗത്തിറക്കുന്നത്

നിലവിൽ അമരാവതി മണ്ഡലത്തിലെ എം

ബനസ്കന്ദയിൽ നിന്നും പാർതിഭായ് ഭട്ടോൽ അമ്രേലിയിൽ നിന്നും പരേഷ് ധനാനി സൂറത്തിൽ നിന്നും അശോക് അത്തേവാഡ എന്നിവരും മത്സരിക്കും

പാർട്ടി അദ്ധ്യക്ഷൻ ഉപേന്ദ്ര കുഷാഹ ഉജ്ജ്യാർപൂർ കാരാഘട്ട് എന്നീ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് ജനവിധി തേടും ഇതിനിടെ നേതാക്കളുടെ പാർട്ടിമാറ്റവും തുടരുകയാണ് സമാജ് വാദി പാർട്ടി നേതാവും യു

മുൻ മന്ത്രിയുമായ രാം സകൽ ഗുർജറും മുൻ എം

എ രാജേന്ദ്രസിങ്ങും രാഷ്ട്രീയ ലോക് സമ്ദ പാർട്ടി നേതാവ് ശിവരാജ്സിങ്ങും ഇന്നലെ ബി ജെ പിയിൽ ചേർന്നു

സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിക്കും യു ഡി എഫ് നേതാക്കൾക്കും ഒപ്പം തുറന്ന വാഹനത്തിലാണ് രാഹുൽഗാന്ധി കളക്ട്രേറ്റിലേക്ക് എത്തിയത് രാവിലെ കോഴിക്കോട് നിന്നും ഹെലികോപ്ടർ മാർഗ്ഗം കൽപ്പറ്റ എസ്

എം ജെ സ്കൂൾ മൈതാനത്ത് ഇറങ്ങിയ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാഗാന്ധിക്കും യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും വൻ സ്വീകരണം നൽകി

സ്ഥാനാർത്ഥി കെ

്സുരേന്ദ്രന് വേണ്ടി അഭിഭാഷകനാണ്പുതിയ സെറ്റ് നാമുന്നീർദ്ദേശ പത്രിക നൽകിയത്

സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്ന് പത്രിക സമർപ്പിക്കും

സ്ഥാനാർത്ഥിയുമായ സ്മൃതി ഇറാനി പറഞ്ഞു

കൂടി പാർട്ടി അംഗത്വം രാജിവെച്ചു കപദ്വഞ്ച് എം

കാലാഭായ് ദാബിയാണ് രാജിവെച്ചത് ഖേദ മണ്ഡലത്തിൽ ബിമൽ ഷായെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് രാജി

ജെ പിയിൽ നിന്നും രാജിവെച്ച ബിമൽഷാ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാലാഭായ് ദാബിക്ക് എതിരെ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു

ജെ

ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ആന്ധ്ര പ്രദേശിലെ നരസാപെട്ടിലും വിശാഖപട്ടണത്തും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ യോഗത്തിൽ സംസാരിക്കും ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ വയനാട്ടിൽ റോഡ് ഷോ നടത്തുകയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇന്ന് അമേഠിയിൽ പര്യടനം നടത്തും

ഇതോടെ ഭവന വാഹന വായ്പാ നിരക്കിൽ കുറവ് വരും

ഐ യും കേന്ദ്ര ഗവൺമെന്റും പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടു വരുമെന്ന് നിതി ആയോഗ് സി ഇ ഒ അമിതാഭ് കാന്ത് നിഷ്ക്രിയ ആസ്തികൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ സുപ്രീംകോടതി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആർ

ഐ യോട് നിർദ്ദേശിച്ചിരുന്നെന്നും ശ്രീ

ചങ്ങാത്ത മുതലാളിത്തം അവസാനിപ്പിക്കാനായി ഗവൺമെന്റും റിസർവ്വ് ബാങ്കും നിരവധി സാമ്പത്തിക അച്ചടക്ക നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വൃക്തമാക്കി

സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി

തീവ്രവാദ സംഘടനകൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താത്തിനാൽ കഴിഞ്ഞ ജൂണിൽ കമ്പനി പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽപ്പെടുത്തിയിരുന്നു

ആലപ്പുഴയിൽ ഉയർന്ന താപനിലയിൽ മൂന്നു മുതൽ നാലു ഡിഗ്രി വരെ വർദ്ധനയുണ്ടാകും വ്യയനാട് ഒഴികെ ജില്ലകളിൽ രണ്ട് മുതൽ മൂന്നു വരെ ഡ്വീഫ്രി സെൽഷ്യസ് താപനില ഉയരും

എല്ലിൽ ഇന്ന് നൂടുക്കുന്ന മൽസരത്തിൽ ഡൽഹി ക്യാപ്പിറ്റൽസ് സൺ ഐസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ലാ മൈതാനിയിൽ രാത്രി എട്ട് മണിക്കാണ് മൽസരം